നിലവിൽ വരും റെഡ് സോണിൽ നിയന്ത്രണം തുടരും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി

കൂടി ഇന്ന് ഉച്ചക്ക് ശേഷം കേരളത്തിൽ നിന്ന് പുറപ്പെടും

രണ്ടാം ഘട്ട ലോക്ഡൌൺ മറ്റെന്നാൾ അവസാനിക്കാനിരിക്കെയാണ് രണ്ടാഴ്ചത്തേയ്ക്കു കൂടി നീട്ടിയത്

ഇതു സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ മാർഗ്ഗരേഖ പുറത്തിറക്കി

ഗ്രീൻ സോണിൽ കൂടുതൽ ഇളവുകൾ നൽകും എല്ലാ ബസ് ട്രെയിൻ മെട്രോ റെയിൽ സർവീസുകൾക്കുള്ള വിലക്കും തുടരും റെഡ് സോണുകളിൽ സൈക്കിൾ റിക്ഷ ഔട്ടോറിക്ഷ ടാക്സി കാബ് അന്തർ ജില്ലാ ബസ് സർവീസ് ബാർബർ ഷോപ്പുകൾ എന്നിവയ്ക്കുള്ള നിരോധനം തുടരും നാല് ചക്രവാഹ്നങ്ങളിൽ ഡ്രൈവറെക്കൂടാതെ രണ്ട് പേർക്ക് യാത്ര ചെയ്യാം ഇരുച്പ്കുപാഹനങ്ങളിൽ ഒരാൾക്ക് മാത്രമേ അനുമതി ഉള്ളൂ നഗരപ്രദേശുങ്ങളിൽ പ്രത്യേക സാമ്പത്തിക മേഖലകൾ കയറ്റുമതി കേന്ദ്രങ്ങൾ ഇൻഡസ്ട്രിയൽ ടൌൺഷിപ്പ് എന്നിവക്ക് അനുമതിയുണ്ട്

എല്ലാ സാമൂഹികകായിക വിനോദ പഠന്ന സാംസ്കാരിക മത ചടങ്ങുകൾക്കും നിരോധനമുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

നാല് ചക്രവാഹനങ്ങളിൽ ഡ്രൈവർക്ക് പുറമേ പരമാവധി രണ്ട് യാത്രക്കാരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ ബൈക്കിൽ രണ്ട് പേർക്ക് യാത്ര ചെയ്യാം ഗ്രീൻ സോണിൽ രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും സേവനങ്ങൾക്കും പ്രവർത്തനാനുമതി നൽകും

സംസ്ഥാനങ്ങൾ ലോക്ഡൌൺ കർശനമായി നടപ്പാക്കണമെന്നും നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തരുതെന്നും ആഭ്യന്തരമന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സുസ്ഥിരതയും കാര്യക്ഷമതയും വർധിപ്പിക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം വിശദമായി ചർച്ചചെയ്തു

ഇരുപതോളം സംസ്ഥാനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് ഗോത്രവർഗ ക്ഷേമ മന്ത്രാലയം അറിയിച്ചു

ലോക്ഡൌൺ ഇളവുകൾ സംബന്ധിച്ച ചർച്ചകൾക്ക് ഇന്ന് സംസ്ഥാന മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ട്രിച്ചി വാർത്താവിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

സേനാമേധാവി ജനറൽ ബിപിൻ റാവത്ത് ഇന്നലെ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്

കോവിഡിന് മുമ്പ് പി

തിരുപനന്തപുരത്ത് നിന്നുള്ള ആദ്യ ട്രെയിൻ ഇന്ന് ഉച്ചക്ക് ശേഷം ഝാർഖണ്ഡിലെ ഹതിയയിലേക്ക് പുറപ്പെടുമെന്ന് ജില്ലാ കളക്ടർ കെ

വൈദ്യ പരിശോധനയടക്കം നടത്തി ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷമാകും ഇവരെ അയക്കുക എറണാകുളം ് സൌത്ത് സ്റ്റേഷനിൽ നിന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിലേക്കും ആലുവയിൽ നിന്ന് ബിഹാറിലെ പാറ്റ്നയിലേക്കും കോഴിക്കോട് നിന്ന് ത്ധാർഖണ്ഡിലെ റാഞ്ചിയിലേക്കും തിരൂരിൽ നിന്നും ബിഹാർ ധാനപൂരിലേയുമാണ് ഇന്ന് പുറപ്പെടുന്ന മറ്റ് നാല് ട്രെയിനുകൾ

കർണ്ണാടക് ഷിമോഗ സ്വദേശി കുമരൻ ആണ് കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്